വ്യവസായ വാണിജ്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ സാമൂഹിക ഉത്തരവാദിത്വം നിറവേറ്റണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അഞ്ചു നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിൽ മൂന്നു മുന്ന ണികളും സ്ഥാനാർത്ഥി നിർണ്ണയ ചർച്ചകൾ തുടരുന്നു കേരള തമിഴ്നാട് അന്തർസംസ്ഥാന നദീജലകരാറുകൾ സംബന്ധിച്ച്

ഭീകരപ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉറച്ച നടപടികൾ ഉണ്ടായാലേ ജമ്മു കശ്മീർ വിഷയത്തിൽ തുടർ ചർച്ചകൾക്ക് ഇന്ത്യ തയാറാകൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാ ക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ കൂടി ക്കാഴ്ചയിലാണ് പ്രധാനമന്ത്രി നിലപാട് അറിയിച്ചത് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യ നേരിടുന്ന ഭീകരവാദ വെല്ലുവിളികൾ നരേന്ദ്രമോദി വിശദീകരിച്ചു

പാകിസ്ഥാനുമായി ചർച്ചുകൾ നടത്തുന്നതിൽനിന്ന് ഇന്ത്യ പിന്നോക്കം പോകില്ലെന്നും എന്നാൽ അതിനാവശ്യമായ പശ്ചാത്തലം ഒരുക്കാൻ അവർ തയ്യാറാകണമെന്നുമാണ് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടത് ് ് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ വൈകാതെ പ്രാവർത്തിക മാകുമെന്ന് കൂടിക്കാഴ്ചയ്ക്കുശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശ്വാസം പ്രകടിപ്പിച്ചു ഇരുരാഷ്ട്രങ്ങളും ഇക്കാരൃത്തിൽ സമവായ ത്തിൽ എത്തിയതായാണ് സൂചന എന്നാൽ കരാർ എന്ന് ഒപ്പിടുമെന്ന കാര്യം വൃക്തമാക്കിയിട്ടില്ല ഇന്ത്യ സന്ദർശിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി അമേരിക്കൻ പ്രസിഡന്റിനെ വീണ്ടും ഓർമ്മിപ്പിച്ചു നേരത്തെ ഹൂസ്റ്റ ണിലെ ഹൌഡി മോദി പരിപാടിയിൽ നരേന്ദ്രമോദി അമേരിക്കൻ പ്രസി ഡന്റിനെ ഇന്ത്യ സന്ദർശിക്കാൻ ക്ഷണിച്ചിരുന്നു ട്രംപ് ക്ഷണം സ്വീകരിച്ചേ ക്കുമെന്നാണ് റിപ്പോർട്ട് വൃവസായ വാണിജൃ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ സാമൂ ഹിക ഉത്തരവാദിത്വം നിറവേറ്റണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിർദ്ദേശിച്ചു വ്യവസായ രംഗത്തെ മിക്വിനൊപ്പം സമൂഹത്തിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളിലും അവർ പങ്കാളികളാകണം മലബാറിന്റെ വ്യാപാര തല സ്ഥാനമെന്ന കോഴിക്കോടിന്റെ പ്രൌഢി തിരികെ പിടിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

പുതിയ ചേംബർ ഭവന് ഗവർണർ തറക്കല്ലിട്ടു

് ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണ്ണയം സംബന്ധിച്ച് മൂന്ന് മുന്നണികളിലും തിരക്കിട്ട ചർച്ചകൾ തുടരുകയാണ്

ഇതിന്റെ ഭാഗമായി കോൺഗ്രസ് സംസ്ഥാന തെര ഞ്ഞെടുപ്പ് സമിതി രാവിലെ തിരുവനന്തപുരത്ത് യോഗം ചേരും

മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ ഇന്നലെ പാണക്കാട്ട് ചേർന്ന മുസ്ലിം ലീഗ് നേതൃയോഗ ത്തിൽ തീരുമാനമായില്ല ഇന്നോ നാളെയോ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപി ക്കുമെന്ന് പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി പി

കുഞ്ഞാലിക്കുട്ടി അറി യിച്ചു സി പി ഐ എമ്മിന്റെ സ്ഥാനാർത്ഥി നിർണ്ണയം വെള്ളിയാഴ്ച നട ത്താനാണ് പാർട്ടി സെക്രട്ടേറിയേറ്റ് തീരുമാനം ജില്ലാ മണ്ഡലം കമ്മിറ്റിക ളുടെ അഭിപ്രായം കൂടി പരിഗണിച്ചായിരിക്കും അന്തിമ തീരുമാനം യു ഡി എഫിന്റെയും എൻ ഡി എയുടെയും സ്ഥാനാർത്ഥികളെ കൂടി തീരുമാനി ച്ചശേഷമായിരിക്കും സി പി ഐ എമ്മിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉപ തെരഞ്ഞെടുപ്പിൽ നാലിടത്ത് ബി ജെ പി സ്ഥാനാർത്ഥികളും ഒരിടത്ത് ബി ഡി ജെ എസ് സ്ഥാനാർത്ഥിയും മത്സരിക്കാനാണ് ഇന്നലെ കൊച്ചിയിൽ ചേർന്ന എൻ ഡി എ കോർകമ്മിറ്റിയിലെ ധാരണ് അരൂർ സീറ്റ് ബി ഡി ജെ എസിന് നൽകും പാലാ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് ഒരുക്ക ങ്ങൾ പൂർത്തിയായി പാലാ കാർമൽ സ്കൂളിലാണ് വോട്ടെണ്ണൽ വെള്ളി യാഴ്ച രാവിലെ എട്ടുമണിക്ക് വോട്ടെണ്ണൽ തുടങ്ങും കേരള തമിഴ്നാട് അന്തർസംസ്ഥാന നദീജല കരാറുകൾ സംബ ന്ധിച്ച് ഇരുസംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരുടെ യോഗം വൈകിട്ട് തിരുവനന്തപുരത്ത് ചേരും പറമ്പിക്കുളം ആളിയാർ പദ്ധതിയടക്കം അണ ക്കെട്ടുകളിലെ നദീജലം പങ്കുവയ്ക്കുന്നതിലെ തർക്കം പരിഹരിക്കാനാണ് ചർച്ച മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടി എം എം മണി കെ രാജു ചീഫ് സെക്രട്ടറി ടോംജോസ് മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചർച്ച യിൽ പങ്കെടുക്കും

മൊയ്തീൻ കോഴിക്കോട്ട് അറിയിച്ചു

എൻ ആർ ഐ ടൌൺഷിപ്പ് നിർമ്മാണം പശ്ചാത്തല സൌക ര്യവികസനം തുടങ്ങിയ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുക യാണ് കമ്പനിയുടെ ഉദ്ദേശൃം നിതാഖത്ത് അടക്കം കാരണങ്ങൾ കൊണ്ട് ജോലി നഷ്ടപ്പെടുന്നവർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും കമ്പനിക്ക് കഴിയും കോഴിക്കോട്ട് നോർക്ക റൂട്ട്സ് മേഖലാ ഓഫീസിന്റെ പുതിയ കെട്ടിടവും ഹോം അറ്റസ്റ്റേഷൻ സേവനവും ഉദ്ഘാടനം ചെയ്യുകയായി രുന്നു മന്ത്രി

നേരത്തെ മരട് നഗരസഭാ സെക്രട്ടറിക്കായിരുന്നു ചുമതല ഫ്ളാറ്റുകൾ പൊളിക്കാൻ സമയബന്ധിതമായ നടപട്ടിയെടുക്കാനാണ് ഗവൺമെന്റിന്റെ നിർദ്ദേശം അഞ്ച് അനധികൃത് ഫ്ളാറ്റുകളിലെയും വൈദ്യു തി കുടിവെള്ള കണക്ഷനുകൾ വെള്ളിയാഴ്ചയ്ക്കകം വിച്ചേദിക്കാൻ നഗ രസഭാ സെക്രട്ടറി കെ എസ്

സേവനം ഇന്നു മുതൽ സംസ്ഥാനത്ത് ലഭ്യമാകും

തിരുവനന്തപുരം മുതൽ എറണാ കുളം വരെ ജില്ലകളിലാണ് ഈ ഘട്ടത്തിൽ ആംബുലൻസ് സർവീസ് ഉണ്ടാവുക വടക്കൻ ജില്ലകളിലേക്ക് ഒക്ടോബർ അവസാനത്തോടെ ആംബു ലൻസുകൾ ലഭ്യമാകും ് പാലാരിവട്ടം മേൽപ്പാലം അഴിമതിക്കേസിൽ പൊതുമരാമത്ത് മുൻ സെക്രട്ടറി ടി

സൂരജിനെ മുവ്വാറ്റുപുഴ ജയിലിൽ വിജിലൻസ് ഇന്ന് ചോദൃം ചെയ്യും

ഇബ്രാഹിം കുഞ്ഞിനെതിരെ നടത്തിയ പരാമർശ ങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാക്കാനാണ് ചോദ്യം ചെയ്യൽ

കണ്ണൂരിൽ വിമാനമിറങ്ങിയ ശേഷം ഹെലികോപ്റ്റ റിലോ റോഡ് മാർഗ്ഗമോ ആയിരിക്കും രാഷ്ട്രപതി നാവിക അക്കാദമിയിൽ എത്തിച്ചേരുക

ന് ഇന്ത്യൻ ചലച്ചിത്ര ലോകത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ മുൻനിർത്തിയാണ് അദ്ദേഹത്തിന് പരമോന്നത ചലച്ചിത്ര ബഹുമതിയെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ടിറ്ററിൽ അറിയിച്ചു

രണ്ടു തലമുറകൾക്ക് പ്രചോദനവും ആനന്ദവും നൽകിയ അമിതാഭ് ബച്ചനെ ഏക കണ്ഠമായാണ് പുരസ്കാരസമിതി അവാർഡിന് തെരഞ്ഞെടുത്തതെന്ന് ജാവ്ദേക്കർ പറഞ്ഞു

നാലു തവണ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടിയ അദ്ദേഹത്തെ രാജ്യം പത്മവിഭൂ ഷണും പത്മഭൂഷണും പത്മശ്രീയും നൽകി ആദരിച്ചിട്ടുണ്ട്

ബംഗളുരുവിൽ വിജയ് ഹസാരെ ഏകദിന ക്രിക്കറ്റിൽ കേരളം ഇന്ന് ഛത്തീസ്ഗഢിനെ നേരിടും കേരളത്തിന്റെ ആദ്യ മത്സരമാണ് ഇന്ന ത്തേത് റോബിൻ ഉത്തപ്പയാണ് കേരളത്തിന്റെ ടീം ക്യാപ്റ്റൻ ് ഗുജറാത്തിലെ വഡോദരയിൽ റെയിൽ പാളത്തിനരികിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കണ്ണൂർ ശ്രീകണ്ഠപുരം സ്വദേശിയായ ജവാൻ എം വി പ്രജിത്തിന്റെ മൃതദേഹം ഇന്ന് രാവിലെ നാട്ടിലെത്തിക്കും

ഔഷധ ഗുണവും വലിപ്പവും കൂടിയ തദ്ദേശീയ ഇനമാണിത് വട്ടവടയിൽ കാർഷിക സമുച്ചയം ഉദ്ഘാടനചട ങ്ങിനോടനുബന്ധിച്ച് കൃഷി വകുപ്പ് വെളുത്തുള്ളി പ്രദർശനവും സംഘടി പ്പിച്ചിരുന്നു

ണികളോ നടത്തിയ പൊതുമരാമത്ത് റോഡുകളിലെ നിർമ്മാണ ക്രമക്കേടു കൾ പരിശോധിക്കാൻ വിജിലൻസ് ഓപ്പറേഷൻ സ്രൾ രാസ്ത പരിശോ ധന ആരംഭിച്ചു കൊല്ലം ജില്ലയിലെ രണ്ടു റോഡുകളിൽ വിജിലൻസ് സംഘം പരിശോധന നടത്തി നിർമ്മാണ് ജോലികൾക്ക് ശേഷം രണ്ടു വർഷ ത്തിനകം തകരുന്ന റോഡുകളെപ്പറ്റി വിജിൽൻസിന് പരാതി നൽകാവുന്ന താണ്

രിൽ ടാക്സി ബ്രേനവീകരണ പ്രവൃത്തികൾ അടുത്തമാസം ആരംഭിക്കും

നിന്ന് പണം പിൻവലിക്കുന്നതിന് ഏർപ്പെടുത്തിയ നികുതി പിൻവലിക്കണ മെന്നും ജില്ലാ കോ ഓപറേറ്റീവ് ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനം കാഞ്ഞങ്ങാട്ട് ആവശ്യപ്പെട്ടു നേരത്തെ മന്ത്രി കട കംപളളി സുരേന്ദ്രൻ സഹകരണ മേഖലയുടെ പ്രസക്തി എന്ന വിഷയ ത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്തു